അടിസ്ഥാന സൌകര്യ വിക്സിന്റ് അഞ്ച് ട്രില്യൺ ഡോളർ സാമ്പത്തിക നേട്ടും ്കർഷക ക്ഷേമം ജലസുരക്ഷ എന്നിവയ്ക്ക് ്കേന്ദ്ര ബജറ്റിൽ പ്രത്യേക ഊന്നൽ

ഇന്ത്യ നാളെ ശ്രീലങ്കയെ നേരിടും

അടിസ്ഥാന സൌകര്യ വികസനത്തിനും ഗ്രാമീണ മേഖലയ്ക്കൂർ സ്ത്രീ മുന്നേറ്റത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ധനമന്ത്രി നിർമലാ സീതാര്രാമൻ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ ഉൾക്കൊള്ളിച്ചത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വൃവസ്ഥ എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുമെന്ന് കേന്ദ്രധനമന്ത്രി വ്യക്തമാക്കി

വിദേശകടം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിലയിലെത്തി ബാങ്കുകളിലെ നിഷ്ക്രിയ ആസ്തി ഒരുലക്ഷം കോടിയായി കുറഞ്ഞുവെന്ന് ശ്രീമതി നിർമലാ സീതാരാമൻ അറിയിച്ചു ഗതാഗത പരിഷ്കരണത്തിനും വികസനത്തിനുമായി ബൃഹത് പദ്ധതിയാണ് ശ്രീമതി നിർമലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചത്

ഗ്രാമീണ നഗര അന്തരം കുറയ്ക്കുന്നതിനായി സാഗർമാല ഭാരത് മാല ഉഡാൻ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കും

അടിസ്ഥാന സൌകര്യ വികസനമാണ് കൂടുതൽ ലക്ഷ്യമിടുന്നത്

നികുതി വകുപ്പിന്റെ പല തരത്തിലുളള പരിശോധനകളിൽ നിന്നും സ്റ്റാർട്ടപ്പുകളെ ഒഴിവാക്കിയിട്ടു ് സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമായി ദൂരദർശന്റെ ആഭിമുഖൃത്തിൽ ഒരു ചാനൽ തുടങ്ങാനും ബജറ്റിൽ നിർദ്ദേശമു ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും വാഹനങ്ങളുടെ ഭാഗങ്ങൾക്കും കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വർദ്ധനവ് ഉട്ടാകും

മാതൃകാ വാടക നിയമം നടപ്പാക്കും

മത്സ്യബന്ധന തൊഴിലാളികളുടേയും മത്സ്യ കർഷകരുടേയും ഉന്നമനത്തിനായി പ്രധാനമന്ത്രി മത്സ്യ സമ്പദാ യോജന നടപ്പാക്കും മത്സൃത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അടിസ്ഥാന സൌകരൃം വികസിപ്പിക്കുകയുമാണ് ലക്ഷ്യം ശക്തമായ മത്സ്യ മാനേജ്മെന്റ് രൂപരേഖ പദ്ധതിയിലൂടെ നടപ്പാക്കും

ഇതിനായി ഗവൺമെന്റ് എല്ലാ നയരൂപീകരണങ്ങളും നടത്തുകയാണെന്നും ശ്രീമതി നിർമ്മലാ സീതാരമൻ ആകാശവാണിയോട് പറഞ്ഞു

ലോക്സഭയിലെ ബജറ്റ് അവതരണത്തിന് ശേഷം അൽപസമയത്തേക്ക് രാജൃസഭ ചേർന്ന് ബജറ്റിന്റെ കോപ്പി മേശപ്പുറത്ത് വച്ചു പിന്നീട് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

പാവപ്പെട്ടവർക്കും യുവാക്കൾക്കും ഇടത്തരക്കാർക്കും കൂടുതൽ പരിഗണന നൽകിയിട്ടു ്

ഇലക്ട്രിക് വാഹനങ്ങളും അനുബന്ധ സൌകര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത് സാമ്പത്തിക രംഗത്ത് തന്നെ വലിയ നേട്ടം ഉ ാക്കുമെന്ന് കേന്ദ്ര ഗതാഗതമന്ത്രി ഫ്രിതിൻ ഗഡ്കരി പറഞ്ഞു മലിനീകരണത്തിനെതിരായും വികസന്ത്തിനുമായുള്ള ബജറ്റാണ് ഇത്

സ്വകാര്യ നിക്ഷേപം അടിസ്ഥാനപ്പെടുത്തിയുള്ള സാമ്പത്തിക വളർച്ചാ പദ്ധതികൾ രാജ്യത്തെ പുതിയ യുഗത്തിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ജലസംരക്ഷണത്തിനായുള്ള ബജറ്റ് പരാമർശത്തെ അഭിനന്ദിച്ച ശ്രീ നിതീഷ്കുമാർ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുത്തിയത് അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനും പരിസ്ഥിതി സൌഹൃദമായ വികസന പ്രവർത്തനങ്ങൾക്കും മാതൃകയാണെന്നും പറഞ്ഞു

ഒരു ലക്ഷത്തി അയ്യായിരം കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കാനുള്ള ബ്ജ്റ്റ് പ്രഖ്യാപനം ശുഭകരമായ സൂചനയാണെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് അഭിപ്രായ്പ്പെട്ടു റയിൽവേയിൽ ഉൾപ്പെടെ പൊതു സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നത് രാജ്യത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണെന്നും എഫ് ഐ സി സി ഐ പ്രസിഡന്റ് സന്ദീപ് സോമനി മാധ്യമങ്ങളോട് പറഞ്ഞു

മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതി ആരോഗ്യ സുരക്ഷ എന്നീ മേഖലകളെ സംബന്ധിച്ച് യാതൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

മകളുടെ വിവാഹത്തിനായാണ് ഉപാധികളോട് പരോൾ അനുവദിച്ചത്

സെമി സാധ്യത നില നിർത്താൻ പാകിസ്ഥാന് ഇന്നത്തെ മത്സരം മികച്ച റൺറേറ്റിൽ വിജയിച്ചേ മതിയാകൂ